ബജറ്റ് അടുത്ത വെള്ളിയാഴ്ച

എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി

ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് രാവിലെ ഒമ്പതിന് സമ്മേളനം ആരംഭിക്കുക

സഭാംഗമായിരിക്കെ മരിച്ച സി എഫ് തോമസിനും മുൻ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജിക്കും അനുശോചനം രേഖപ്പെടുത്തി തിങ്കളാഴ്ച സഭ പിരിയും ചൊവ്വാഴ്ച മുതൽ മൂന്ന് ദിവസം ഗവർണറുടെ പ്രസംഗത്തിൻമേൽ നന്ദി പ്രമേയ ചർച്ച നടക്കും അടുത്ത വെള്ളിയാഴ്ച മന്ത്രി ഡോ ടി എം തോമസ് ഐസക് പിണറായി ഗവൺമെന്റിന്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കും

സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ മാറ്റണമെന്നാവശ്യപ്പെടുന്ന പ്രതിപക്ഷം നൽകിയ നോട്ടീസിൽ യുക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സ്പീക്കർ അറിയിച്ചു രുര കോവിഡ് വാക്സിൻ നൽകുന്നതിന് മുന്നോടിയായി രണ്ടാമത് ഡ്രൈ റൺ രാജ്യ വ്യാപകമായി ഇന്ന് നടക്കും

വാക്സിൻ നൽകുന്നതിന്റെ പൂർണതോതിലെ ആസൂത്രണം ഗുണഭോക്താക്കളുടെ രജിസ്ട്രേഷൻ വാക്സിൻ കുത്തിവെപ്പ് കേന്ദ്രങ്ങളിലെ ക്രമീകരണം തുടങ്ങിയവ ജില്ലാ കലക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധിക്കും

വിശദാശംങ്ങളുമായി ഹബീബ് റഹ്മാൻ വോയ്സ് രുര എപ്പോൾ വാക്സിൻ എത്തിയാലും സംസ്ഥാനം കോവിഡ് വാക്സിനേഷൻ സജ്ജമാണെന്ന് മന്ത്രി കെ

ആദ്യ ഘട്ടത്തിൽ ഗവൺമെന്റ് സ്വകാര്യ മേഖലയിലെ എല്ലാ വിഭാഗം ആരോഗ്യ പ്രവർത്തകർ മെഡിക്കൽ വിദ്യാർത്ഥികൾ ആശ വർക്കർമാർ ഐ സി ഡി എസ് അങ്കണവാടി ജീവനക്കാർ എന്നിവർക്കാണ് വാക്സിൻ നൽകുന്നതെന്നും മന്ത്രി അറിയിച്ചു

വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ ഉയർന്ന സംശയങ്ങൾക്ക് വ്യക്തത വരുത്തിയാണ് മന്ത്രാലയത്തിന്റെ വിശദീകരണം സ്വയം സംരക്ഷിക്കുന്നതിനും രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിനും വാക്സിനേഷൻ പൂർണതോതിൽ സ്വീകരിക്കുന്നത് അഭികാമ്യമാണെന്ന് മന്ത്രാലയം വിശദീകരിച്ചു

രുര എറണാകുളം ജില്ലയിൽ ആദ്യഘട്ടത്തിൽ വാക്സിൻ സ്വീകരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ രജിസ്ട്രേഷൻ പൂർത്തിയായി വാക്സിൻ നൽകുന്നത് സംബന്ധിച്ച് രണ്ടായിരത്തിലധികം ആരോഗ്യ പ്രവർത്തകർക്ക് പരിശീലനം നൽകി

വാക്സിൻ നൽകുന്നതിന് ഗവൺമെന്റ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും നൂറുശതമാനം സ്ഥാപനങ്ങളിലെയും ജീവനക്കാരുടെ വിവരങ്ങൾ കോവിൻ എന്ന സോഫ്റ്റ്വെയർ മുഖേന അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രുമ കൊവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ കേരളമടക്കം നാല് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് അതിജാഗ്രതാ നിർദേശം നൽകി

കൊച്ചി തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രികളിലും സൌകര്യങ്ങൾ വർധിപ്പിക്കും

ജില്ലയിൽ കൂടുതൽ കൊവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കലക്ടർ അറിയിച്ചു രുര കണ്ണൂർ ജില്ലയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിയമിച്ച സെക്ടറൽ മജിസ്ട്രറ്റുമാരുടെ നോഡൽ ഓഫീസറായി തലശ്ശേരി സബ് കലക്ടർ അനു കുമാരിയെ നിയമിച്ചു ദുരന്ത നിവാരണ നിയമമനുസരിച്ചാണ് നടപടി രംഭ പക്ഷിപ്പനി സ്ഥിരീകരിച്ച കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ സ്ഥിതി വിലയിരുത്തുന്നതിനും ആരോഗ്യ വകുപ്പിന്റെ കോവിഡ് പ്രതിരോധ നടപടികൾ അവലോകനം ചെയ്യുന്നതിനും രണ്ടംഗ കേന്ദ്രസംഘം ഇന്നും നാളെയും സന്ദർശനം നടത്തും കോട്ടയം ജില്ലയിൽ ഇന്നും ആലപ്പുഴ ജില്ലയിൽ നാളെയുമാണ് സന്ദർശനം കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി മിൻഹാജ് ആലം ന്യൂഡൽഹിയിലെ ദേശീയ രോഗ നിയന്ത്രണ കേന്ദ്രം ഡയറക്ടർ ഡോ

സിംഗ് എന്നിവർ ജില്ലാ കളക്ടർമാരുമായും ജില്ലാതല ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തും രും കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കേന്ദ്രം കർഷക സംഘടന പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ഇന്ന് വീണ്ടും ചർച്ച നടത്തും പ്രശ്ന പരിഹാരത്തിന് എട്ടാം തവണയാണ് ചർച്ച നടക്കുന്നത് മൂന്ന് കർഷക നിയമങ്ങളിലേയും വകുപ്പുകൾ ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് സന്നദ്ധമാണെന്ന് ഈ മാസം നാലിന് കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്രസിങ് തോമർ കർഷക സംഘടനാ പ്രതിനിധികളെ അറിയിച്ചിരുന്നു എന്നാൽ മൂന്ന് നിയമങ്ങളും പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കർഷകർ

സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിദേശകാര്യ സഹമന്ത്രി വി

ഘാനയിലെ ഇന്ത്യൻ സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം ഇന്ത്യ ഘാന സൌഹൃദം ശക്തിപ്പെടുത്താൻ സഹായിച്ചതിൽ അവരെ അഭിനന്ദിച്ചു

എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി ഗോവയിൽ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഒഡീഷ എഫ്

സിയെ നേരിടും രംഭ ഇന്ത്യക്കെതിരായ സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടാം ദിവസം കളി ആരംഭിച്ചപ്പോൾ ഓസ്ട്രേലിയക്ക് രണ്ട് വിക്കറ്റ് കൂടി നഷ്ടമായി

രുര വൈറ്റില കുണ്ടന്നൂർ മേൽപ്പാലങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നാടിന് സമർപ്പിക്കും കൊച്ചി നഗരത്തിലേയും ദേശീയ പാതയിലേയും ഗതാഗത സൌകര്യ വികസനത്തിൽ നാഴികക്കല്ലായി മാറുന്ന മേൽപ്പാലങ്ങൾ ഓൺലൈനായാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുക രുഭ ലഹരിമുക്തി പ്രോത്സാഹിപ്പിക്കുന്ന വിമുക്തി പദ്ധതി തദ്ദേശസ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ താലൂക്ക് തലത്തിലും വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി ടി

കഴിഞ്ഞ വർഷം റിക്കോർഡ് ലഹരി പദാർത്ഥങ്ങളാണ് പിടിച്ചെടുത്തതെന്ന് മന്ത്രി പറഞ്ഞു

രുര സംസ്ഥാനത്തെ അവിവാഹിതരായ അമ്മമാരുടെ ക്ഷേമത്തിനായി ആരംഭിച്ച സാമൂഹ്യ സുരക്ഷ മിഷന്റെ സ്നേഹ സ്പർശം പദ്ധതിക്ക് ധനവകുപ്പ് മൂന്ന് കോടി മൂന്ന് ലക്ഷത്തിൽപരം രൂപയുടെ അനുമതി നൽകിയതായി മന്ത്രി കെ

രുഭ കുണ്ടറ കുടിവെള്ള പദ്ധതി ഉടൻ കമ്മീഷൻ ചെയ്യുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു കൊല്ലം ജില്ലയിലെ വിവിധ കുടിവെള്ള പദ്ധതികളുടെ പുരോഗതി വിലയിരുത്താൻ കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

തിങ്കളാഴ്ച വരെ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലാ അലർട്ട് പ്രഖ്യാപിച്ചു അറബിക്കടലിലും തമിഴ്നാട് തീരത്തും രൂപം കൊണ്ട ചക്രവാത ചുഴിയാണ് ഇപ്പോഴത്തെ മഴയ്ക്ക് കാരണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഉച്ചയ്ക്ക് രണ്ടു മുതൽ രാത്രി പത്തു വരെ ഇടിമിന്നലിന് സാധ്യത കൂടുതലാണെന്നും ജനങ്ങൾ മുൻ കരുതൽ സ്വീകരിക്കണമെന്നും കാലവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി രും കോഴിക്കോട് തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ അന്നശ്ശേരി പാക്കവയലിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ കൃഷി നശിച്ച സ്ഥലങ്ങൾ മന്ത്രി എ

രുഭ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറുമേനി കൊയ്യുകയാണ് ലക്ഷ്യമെന്ന് കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു കോഴിക്കോട്ട് നടന്ന കെ

സി സി ഉത്തരമേഖലാ നേതൃ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശതെരഞ്ഞെടുപ്പിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ പരിഹരിച്ച് ഊർജ്ജസ്വലമായി മുന്നോട്ട് പോവുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു